സമാധാനത്തിൽ വിശ്വസിക്കുന്നു വെങ്കിലും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയ്ക്കി ല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി

രാമകൃഷ്ണൻ

പണിമുടക്ക് ഒഴിവാക്കാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ചു

എം

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ബെങ്കലൂരൂ എഫ്

ചെന്നൈയിൻ എഫ്

മത്സരം

പരാക്രം പർവ്വ് ദിനാചരണം യുവജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുമെന്ന് മൻകിബാത് പരിപാടിയിൽ അദ്ദേഹം വൃക്തമാക്കി രാജ്യം സമാധാനത്തിൽ വിശ്വസിക്കുന്നുവെ ങ്കിലും രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യില്ല

ലോക സമാധാനത്തിന് ഇന്ത്യൻസേന മഹത്തായ പങ്കാണ് വഹിക്കുന്നതെന്നും സൈനികരുടെ സേവനത്തിൽ ഓരോ ഭാരതീയനും അഭിമാനംകൊള്ളുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അഭിലാഷ് ടോമിയുടേതുപോലെ ശുഭാപ്തിവിശ്ചാസവും ധൈര്യവും മനക്കരുത്തും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു

ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഭാരതത്തിന്റെ പ്രവർത്തനം ലോകം ഉറ്റുനോക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ശബരിമല സ്ത്രീപ്രവേശം സംബന്ധിച്ച സുപ്രീംകോടതി വിധിയിൽ പുനപരിശോധന ഹരജി നൽകുന്ന കാര്യം ഉടൻ തീരുമാനിക്കുമെന്നും വിധി നടപ്പാക്കാൻ സാവകാശം ചോദിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ

ഇക്കാര്യം തീരുമാനിക്കാൻ ബുധനാഴ്ച ദേവസ്വം ബോർഡ് യോഗം ചേരും

നിലയ്ക്കലിൽ നൂറ് ഏക്കർ വനഭൂമികൂടി വേണമെന്ന നിർദ്ദേശത്തിന് മുഖ്യമന്ത്രിയുടെ പിന്തുണ ലഭിച്ചതായി രാവിലെ മുഖൃമ്ന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

ശബരിമല സ്ത്രീപ്ര്യേശവുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിക്കെതിരെ പുനപരിശോധന ഹർജി സമർപ്പിക്കണമെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റും തിരുവിതാംകൂർ ദേവസം ബോർഡും രണ്ടു തട്ടിലാണ് നീങ്ങുന്നത് പിധിയുണ്ടാക്കുന്ന സാമൂഹ്യപ്രത്യാഘാത ങ്ങളും പ്രായോഗിക ബുദ്ധിമുട്ടുകളും പരിഗണിക്കണമെന്നും ചെന്നിത്തല സ്വകാര്യ ചാനലിനോട് പറഞ്ഞു ശബരിമല സംബന്ധിച്ച കോടതിവിധി നടപ്പാക്കാനുള്ള ബാധൃത ഗവൺമെന്റ് നിറവേറ്റുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വിധി നടപ്പാക്കേണ്ടത് ദേവസ്വം ബോർഡാണെന്നും അതിന് ഗവൺമെന്റ് മുൻകൈയെടു ക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു വിധിയെ എതിർക്കുന്നവർ പിന്തുണയില്ലെന്ന്കണ്ട് പിന്മാറിക്കൊള്ളു മെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു സുപ്രീംകോടതി വിധിക്കുപിന്നാലെ ശബരിമലയെ തകർക്കാൻ ഉള്ള സി

ഐ എം

ശ്രീധരൻപിള്ള പറഞ്ഞു സ്ത്രീപ്രവേശം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ പുനപരി ശോധനാഹർജി അടക്കം സാധ്യതകൾ നിലനിൽക്കുമ്പോൾ ഇക്കാര്യത്തിൽ തിടുക്കത്തിൽ തീരുമാനം എടുക്കേണ്ട തില്ലെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സംസ്ഥാനത്ത് ബ്രൂവറി അനുവദിച്ചതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടി ല്ലെന്ന് മന്ത്രി ടി

കിൻഫ്രയുടെ ഭൂമി സംബന്ധിച്ച് വ്യവസായ വകുപ്പുമായി യാതൊരു അഭിപ്രായവ്യത്യാസവുമില്ലെന്നും വിവാദങ്ങൾ അനാവശൃമാണെന്നും മന്ത്രി സ്വകാരൃ ചാനലിനോട് പറഞ്ഞു ചൊവ്വാഴ്ച മുതൽ കെ എസ് ആർ ടി സി സംയുക്ത സമരസമിതി ആരംഭിക്കുന്ന പണിമുടക്ക് ഒഴിവാക്കാൻ ഇന്ന് തിരുവനന്തപുരത്ത് ചർച്ച നടക്കും മന്ത്രി എ കെ ശശീന്ദ്രൻ കെ എസ് ആർ ടി സി എം ഡി ടോമിൻ ജെ തച്ചങ്കരി എന്നിവർ യൂണിയൻ നേതാക്കളുമായാണ് ചർച്ച നടത്തുക കെ എസ് ആർ ടി സി യിൽ പ്രണിമുടക്ക് വിലക്കി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു കേരളത്തിലെ നിരവധി സാമ്പത്തിക ഇടപാടു കൾക്കു പിന്നിൽ പ്രവർത്തിക്കുന്ന കൊള്ളപലിശക്കാരൻ പി മഹാരാജനെ കൊച്ചിയിലെത്തിച്ചു ഇയാളെ പൊലീസ് ചോദ്യം ചെയ്തുവരികയാണ് ഇന്നലെ ചെന്നൈയിൽനിന്ന് കേരളാപൊലീസ് സംഘം ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു രണ്ടുദിവസത്തെ സി പി ഐ എം സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു പി കെ ശശി എം എൽ എയ്ക്കെതിരായ ലൈംഗികാരോപണത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് യോഗം ചർച്ച ചെയ്തേക്കും എന്നാൽ പാർട്ടി സെക്രട്ടറിയേറ്റ് പരിഗണിച്ചശേഷമേ സംസ്ഥാനസമിതിയ്ക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാൻ കഴിയൂ അതിനാൽ സംസ്ഥാനസമിതി യോഗത്തിനിടയിൽതന്നെ സെക്രട്ടറി യേറ്റ് ചേർന്നേക്കുമെന്നാണ് തിരുവനന്തപുരം റിപ്പോർട്ട് നാളെ രാവിലെവരെ സംസ്ഥാനത്തെ തെക്കൻ ജില്ലകളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാവകുപ്പ് അറിയിച്ചു മലയോരമേഖലയിൽ ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട് വേലിയേറ്റം ശക്തമായതിനാൽ സംസ്ഥാനത്തെ തീരദേശത്ത് കടൽക്ഷോഭമുണ്ടാ ന കുമെന്നും മുന്നറിയിപ്പുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അന്തരീക്ഷച്ചുഴി രൂപപ്പെട്ടതിനെതുടർന്നാണ് സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടത് മൃതദേഹം കൊണ്ടുപോകുന്നതിന് നിരക്ക് ഇരട്ടിയാക്കിയ തീരുമാനം എയർഇന്ത്യ പിൻവലിച്ചു നടപടിയിൽ പ്രവാസികൾ ശക്തമായ എതിർപ്പ് പ്രകടപ്പിച്ചിരുന്നു പഴയ നിരക്ക് തുടരുമെന്ന് എയർഇന്തൃ അധികൃതർ അറിയിച്ചു

സാക്കിബ് മിർ ആണ് പ്പുലർച്ചെയുണ്ടായ സംഭവത്തിൽ മരിച്ചത്

വാർത്താവിതരണ് ബന്ധം തകരാറിലാ യതിനാൽ ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതെയുള്ളു എന്നും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നുമാണ് ഔദ്യോഗിക വാർത്താ ഏജൻസികളുടെ വെളിപ്പെടുത്തൽ

ഇന്ത്യൻ സൂപ്പർലീഗ് ഫുട്ബോളിൽ ഇന്ന് ബെങ്കലൂരു എഫ് സി ചെന്നൈയിൻ എഫ് സിയെ നേരിടും

തിരുവനന്തപുരത്ത് എട്ടാമത് ഏഷ്യൻ യോഗ സ് പോർട് സ് ചാമ്പ്യൻഷിപ്പ് ഇന്ന് സമാപിക്കും

വൈകീട്ട് സമാപനസമ്മേളനം ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും

കോഴിക്കോട് കുറ്റ്യാടി ചുരം റോഡിലെ സംരക്ഷണഭിത്തിയുടെ തകരാർ ഉടൻ പരിഹരിക്കും ഇതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരികയാണെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജില്ലാ വികസനസമിതി യോഗത്തിൽ അറിയിച്ചു

വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടു ക്കപ്പെട്ട കെ

ഇന്നലെ വൈകീട്ട് റെയിൽസ്റ്റേഷനിൽ നൽകിയ സ്വീകരണത്തിൽ ഒട്ടേറെ പ്രവർത്തകർ പങ്കെടുത്തു കാഞ്ഞങ്ങാട്ട് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന കെ മാധവൻ പുരസ്കാര ചടങ്ങ് മാറ്റിവെച്ചു പുരസ്കാര ജേതാവ് സി പി ഐ എം ജനറൽസെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അസൌകരൃത്തെതുടർന്നാണ് ചടങ്ങ് മാറ്റിയതെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണൂർ ജില്ലയിൽ ഉരുൾപൊട്ടലിനെതുടർന്ന് ഭൂമി വിണ്ടുകീറിയ സ്ഥലങ്ങളിൽ വിദഗ്ധസമിതി പഠനം നടത്തുമെന്ന് ജില്ലാ കലക്ടർ മീർമുഹമ്മദലി അറിയിച്ചു കൊട്ടിയൂർ കേളകം കണിച്ചാർ എന്നിവിടങ്ങളിലാണ് ഭൂമിയിൽ വിള്ളൽ കണ്ടെത്തിയത് ഈ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച തീരുമാനം വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാർമായിരിക്കുമെന്നും കലക്ടർ അറിയിച്ചു യാത്രക്കാർക്കു നൽകുന്ന സേവനത്തിന്റെ അടിസ്ഥാന ത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് എയർപോർട്ട് കൌൺസിൽ ഇന്റർനാഷണലിന്റെ അംഗീകാരം ലഭിച്ചു

കാനഡയിലെ ഹാലിഫാക്സിൽ നടന്ന ചടങ്ങിൽ സിയാൽ ഓപ്പറേഷൻസ് സീനിയർ മാനേജർ പുരസ്കാരം ഏറ്റുവാങ്ങി തുടർച്ചയായി രണ്ടാംതവണയാണ് സിയാൽ ഈ പുരസ്കാരം നേടുന്നത് സംസ്ഥാന സ്കൂൾ വിക്കിയിൽ ഏറ്റവും മികച്ച രീതിയിൽ വിവരങ്ങൾ നൽകിയ സ്കൂളായി മലപ്പുറം അരീക്കോട് ഗവൺമെന്റ് ഹയർസെക്കണ്ടറി സ്കൂൾ തിരഞ്ഞെടു ക്കപ്പെട്ടു വയനാട് വാകേരി ജി

എച്ച്

തിരുവനന്തപുരം വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ എച്ച്

എന്നിവ രണ്ടും മൂന്നും സ്ഥാനത്തെത്തി കേരള ഇൻഫ്രാസ്ട്രക്ചർ ആന്റ് ടെക്നോളജി ഫോർ എജ്യുക്കേഷൻ കൈറ്റ് ആണ് പുരസ്കാരം ഏർപ്പെടു ത്തിയത് സംസ്ഥാനത്തെ സ്കൂളുകളെ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്ന മലയാളം പോർട്ടലാണ് വിക്കി

മണിപ്പാൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ മരണകാരണം എച്ച് വൺ എൻ വൺ ആണെന്നാണ് തെളിഞ്ഞതെന്ന് ജില്ലാ അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

നഷ്ടം കണക്കാ ക്കിവരുന്നു വടകര വേളത്ത് മണൽകടത്ത്സംഘം റവന്യൂ അധികൃതരുടെ വാഹനത്തിനുനേരെ ടിപ്പർലോറി ഇടിച്ചുകയറ്റി

ടിപ്പർ ഖ്രൈവർ ഓടി രക്ഷപ്പെട്ടു ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റിട്ടില്ലെന്നാണ് റിപ്പോർട്ട് തമിഴ്നാട് തിരുച്ചിറപ്പള്ളിയിൽ നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് മൂന്ന് കുട്ടികളും രണ്ട് സ്ത്രീകളും ഉൾപ്പെടെ എട്ട് പേർ മരിച്ചു

ചെന്നൈയിൽനിന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോവുകയായിരുന്ന കാറാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത് സംഭവത്തിൽ നാലുപേർക്ക് പരിക്കേറ്റു